ടെസ്റ്റ് ആദ്യ ഇന്നിംഗ്സിന്റെ മൂന്നാം ദിവസത്തെ കളി മഴമൂലം നിർത്തി വച്ചു

മത്സരത്തിൽ ഇന്ത്യ ഇന്ന് കാനഡയെ നേരിടും

വിശദാംശങ്ങളുമായി ദീപു

ഇതിൽ മുഖ്യമന്ത്രി വ്യസ്റ്റിഡര രാജെ സ്പീക്കർ കൈലാഷ് മേഘ്വാൾ മുൻ മുഖ്യമിന്റി അശോക് ഗെഹ്ലോട്ട് പി സി സി നേതാവ് സച്ചിൻ ഐപ്പിലറ്റ് മുൻ കേന്ദ്രമന്ത്രിമാരായ സി

അൽവാർ ജില്ലയിലെ ര്യ്ക്ഗർഹ് നിയോജക മണ്ഡലത്തിലെ തെരെഞ്ഞെടുപ്പ് ബി

ഇവരിൽ കാവൽ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാറു സ്പീക്കർ മധുസുധാനാചാരി പിരിച്ചുവിടപ്പെട്ട നിയമസഭയിലെ പ്രതിപക്ഷനേതാവ് കെ ജനറെഡ്സി ബി ജെ

തെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാൻ തെലങ്കാന മിസോറാം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ ചൊവ്വാഴ്ച നടക്കും

ജെ

പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്ട് ആവശ്യപ്പെട്ടു മുതിർന്ന പാർട്ടി നേതാക്കളായ ജെ

നുദ്ദ് മൂഖ്താർ അബ്ബാസ് നഖ്വി എന്നിവരുൾപ്പെട്ട ബി ജെ

ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് നഖ്വി ആരോപിച്ചു രാജസ്ഥാനിൽ ചില മേഖലകളിൽ ബൂത്ത് പിടിത്തം നടന്നെന്നും അവിടങ്ങളിൽ റീപോളിംഗ് നടത്തണമെന്നും ബി ജെ

ബി ഐ

ബി ഐ

രാജ്യത്തിന്റെ വളർച്ച്ഐ ത്വരിതപ്പെടുത്താൻ നിരവധി സാധ്യതകളാണ് പുതുസംരംഭകർക്കു മുന്നിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഇ യ്ക്ക്സമർപ്പിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു

വീയ്ന്നയിൽ ഇന്നലെ നടന്ന ഒപ്പെക്കിന്റെയും സഖ്യ രാജ്യ പ്രിയിനിധികളുടേയും യോഗത്തിനു ശേഷം ഇറാഖ് ഇന്ധന വ്യകൂപ്പ് മന്ത്രി തമീർ അബ്ബാസ് അൽ ഗധ്ബാൻ അറിയ്ടിച്ചതാണ് ഇക്കാര്യം അടുത്ത മാസം മുതൽ ഉടമ്പടി നിലവിൽ വരും

ആവശ്യത്തിലധികം ഉല്പാദനം നടക്കുന്നതിനാൽ രണ്ട് മാസത്തിനിടെ ആഗോള വിപണിയിൽ മുപ്പത് ശതമാനത്തിലധികമാണ് ഇന്ധനവില കൂപ്പുകുത്തിയത് ആഗോള വിപണിയിൽ ഇന്ധന വില കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേയും ആവശ്യം ഒപ്പെക് സമിതി ഗൌരവപൂർവ്വം പരിഗണിക്കുമെന്നും സൌദി അറേബൃ അറിയിച്ചു

ഇന്ത്യയുടെ കാണ്ട് അക്കൌണ്ട് കമ്മി ജി ഡി

സകുടുംബമുള്ള പ്രവേശനത്തിന് അവസരം ലഭിക്കില്ല എന്നാൽ ഉയർന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കുകയും ജപ്പാനീസ് ഭാഷ പരീക്ഷ പാസ്സാകുകയും ചെയ്യുന്നവർക്ക് വിസ അനന്തമായി നീട്ടി നൽകുകയും സകുടുംബ പ്രവേശനം അനുവദിക്കുകയും ചെയ്യും അടുത്ത വർഷം ഏപ്രിൽ മുതൽ പദ്ധതി നടപ്പിലാകുമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ അബേ പാർലമെന്റിനെ അറിയിച്ചു

ഇന്ത്യയ്ക്കു വേണ്ടി ഇഷാന്ത് ശ്രീമ്മ രണ്ടും ജസ്പ്രീത് ബുംറാ മൂന്നും വിക്കറ്റുകൾ നേടി

ഓസ്ട്രേലിയയ്ക്കുവേണ്ടി ഹേസൽവുഡ് മൂന്ന് വിക്കറ്റുകൾ നേടി